സ്കൂൾ പരീക്ഷകളെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളായി കാണേ തില്ലെന്നും പരീക്ഷകളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തേ അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി

സുക്ഷ്മ ചെറുകിട ഇടത്തരം സ്ഠരംഭങ്ങൾക്കും കാർഷിക ഭവന മേഖലകൾക്കും വായ്പാ പദ്ധതി ആവിഷ്ക്കരിക്കണാമന്ന് ബാങ്കുകളോട് കേന്ദ്ര ധനമന്ത്രി

ന്യൂസിലന്റിനെതിരായ ര ട്ടാം വനിതാ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം

പരീക്ഷകളെ വിദ്യാർത്ഥികൾ ലളിതമായി അഭിമുഖീകരിക്കണമെന്ന് പറഞ്ഞ് സംവാദം ആരംഭിച്ച പ്രധാനമന്ത്രി ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാനാണ് താനിന്നിവിടെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു മലയാളി വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ഉത്തരം പറയവെ സ്കൂൾ പരീക്ഷകളെ ജിവിതത്തിലെ വലിയ പരീക്ഷണങ്ങളായി കാണേ തില്ലെന്നും സ്കൂൾ പരീക്ഷകളോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തേ ത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഓരോ കുട്ടികളുടെയ്യും കഴിവുകൾ വ്യത്യസ്തമാണെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കേ ത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്നും മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിലെ തൽക്കത്തോര സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമൊപ്പം ായിരത്തിലധികം വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ര റഷ്യ നൈജീരിയ ഇറാൻ നേപ്പാൾ ദോഹ കുവൈറ്റ് സൌദി അറേബൃ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ സംവാദത്തിൽ പങ്കാളികളായതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

സൂക്ഷ്മ ചെറുക്കിട ഇട്ടത്തരം സംരംഭങ്ങൾക്കും കാർഷിക ഭവന മേഖലകൾക്കും വായ്പാ പദ്ധതി ആവിഷ്ക്കരിക്കാൻ ശ്രീ പീയുഷ് ഗോയൽ ബാങ്കുകളോട് ആവശ്യപ്പെട്ടു പാപ്പർത്ത നിയമം നടപ്പാക്കിയതുമൂലം നടപ്പു സാമ്പത്തിക വർഷം ഒരുലക്ഷ് ക്കോടി രൂപയിലധികം തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് കഴിഞ്ഞതായും അദ്ദേഹം വിലയിരുത്തി

രാമക്ഷേത്ര നിർമാണത്തിനുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് രാമജന്മഭൂമി തർക്ക മന്ദിരത്തിനു ചുറ്റുമുള്ള ഭൂമി തിരിച്ചു ന നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടു ന്ന് ഹർജിയിൽ സൂചിപ്പിക്കുന്നു

പി ക്ക് ശക്തമായ പിന്തുണ നൽകിയ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി അസ്സമിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുന്നതിനും ബി

മരിച്ചവരിൽ മുന്ന് കുട്ടികളും ഉൾപ്പെടുന്നു പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്

സിന്ധുനദീ തടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇന്തൃയിലെയും പാകിസ്ഥാനിലെയും ഉന്നത തല പ്രതിനിധികൾ പരിശോധിക്കണമെ ന്നാണ് കരാർ നിഷ്ക്കർഷിക്കുന്നത്

ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലന്റിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു സ്മൃതി മന്ദാന് കൃാപ്ടൻ മിതാലിരാജ് എന്നിവരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് പിജയം നൽകിയത് സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം